ആദിവാസി ക്ഷേമ പദ്ധതികൾ ഉന്നതതലയോഗത്തിൽ മുഖ്യമന്ത്രി അവലോകനം ചെയ്യും ചെങ്ങന്നൂർ ഉപതിരഞ്ഞെടുപ്പിൽ പി

ഉപതിരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിച്ചാലും നേരിടാൻ സജ്ജമാണെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുശേഷം വിദേശത്തേക്ക് രക്ഷപ്പെട്ട ടുന്നവരുടെ ആസ്തികൾ പിടിച്ചെടുക്കുന്ന ബില്ലിന് കേന്ദ്രമന്ത്രി സഭ അംഗീകാരം നൽകി മലപ്പുറത്ത് സി

ഐ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നു പങ്കെടുക്കും പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന് ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അട്ടപ്പാടി സന്ദർശിക്കും ആദി വാസി യുവാവ് മധുവിന്റെ മരണത്തെത്തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ അഗളി കില മേഖലാ കേന്ദ്രത്തിൽ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അവലോകനം ചെയ്യും മുഖ്യമന്ത്രിയുടെ അധ്യ ക്ഷതയിൽ ചേരുന്നയോഗം ആദിവാസി പദ്ധതി ഫണ്ട് വിനിയോഗവും ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പും വിലയിരുത്തും തുടർന്ന് ചിണ്ടക്കി ഊരിലെ മധുവിന്റ വീടും മുഖ്യമന്ത്രിയും സംഘവും സന്ദർശിക്കും

ഓരോ കേരളീയന്റെയും മനസിൽ ഇതു സംബന്ധിച്ച ചോദ്യം ഉയരണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു

എൺപതോളം സ്വദേശ വിദേശ പ്രസാധകർ മേളയിൽ പങ്കെടു ക്കുന്നുണ്ട് ചെങ്ങന്നൂർ ഉപതിരഞ്ഞെടുപ്പിൽ പി

ശ്രീധരൻപിള്ളയെ സ്ഥാനാർഥിയാക്കാൻ ബി ജെ

സംസ്ഥാന നേതൃയോഗം തീരുമാനി ച്ചു ശ്രീധരൻപിള്ളയുടെ പേര് ബി ജെ

കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മി റ്റിക്ക് കൈമാറാൻ സംസ്ഥാന പ്രസിഡന്റ് ്കുമ്മനം രാജശേഖരനെ ചുമ തലപ്പെടുത്തി

ചെങ്ങന്നൂർ ഉപതിരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിച്ചാലും നേരിടാൻ പാർട്ടി സജ്ജമാണെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടി യേരി ബാലകൃഷ്ണൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായാൽ ഉടൻ പാർട്ടി സ്ഥാനാർഥിയെ പ്രഖ്യാപിക്കും തികഞ്ഞ ആത്മവിശ്വാസ ത്തിലാണ് പാർട്ടിയെന്നും പ്രചാരണത്തിന്റെ ആദ്യഘട്ടം തുടങ്ങിക്കഴി ഞ്ഞെന്നും അദ്ദേഹം ചെങ്ങന്നൂരിൽ പറഞ്ഞു

എം ജില്ലാ കമ്മിറ്റി ഏരിയാ കമ്മിറ്റി യോഗങ്ങളിൽ കോടിയേരി പങ്കെടുത്തു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്തശേഷം വിദേശത്തേക്ക് രക്ഷ പ്പെടുന്നവരുടെ ആസ്തികൾ പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരം നൽകുന്ന ഫ്യുജിറ്റീവ് ഇക്കണോമിക് ഒഫന്റേഴ്സ് ബില്ലിന് കേന്ദ്രമന്ത്രി സഭ അംഗീകാരം നൽകി

തിങ്കളാഴ്ച തുടങ്ങുന്ന പാർലമെന്റ് ബജറ്റ് സമ്മേളന ത്തിന്റെ രണ്ടാംഘട്ടത്തിൽ ബിൽ സഭയിൽ കൊണ്ടുവരുമെന്നും ജെയ്റ്റ്ലി വെളിപ്പെടുത്തി

എക്സ് മീഡിയ കേസിൽ അറസ്റ്റിലായ കാർത്തി ചിദംബ രത്തെ ഡൽഹി കോടതി അഞ്ച്ദിവസത്തെ സി ബി ഐ കസ്റ്റഡിയിൽ വിട്ടു വിദേശനാണ്യ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട കേസി ലാണ് കാർത്തിയുടെ അറസ്റ്റ് നേരത്തെ കാർത്തി ചിദംബരത്തെ ഒരു ദിവസത്തെ സി ബി ഐ കസ്റ്റഡിയിൽ കോടതി വിട്ടുകൊടുത്തിരുന്നു

പുഷ്പ കാലത്തിന്റെ വരവറിയിക്കുന്ന ഹോളി തിന്മയുടെമേൽ നന്മയുടെ വിജയം ഉദ്ഘോഷിക്കുന്ന ആഘോഷവേളയാണ് രാഷ്ട്രപതി രാംനാഥ്കോവി ന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു തുടങ്ങിയവരടക്കം പ്രമുഖർ ജന ങ്ങൾക്ക് ഹോളി ആശംസകൾ നേർന്നു മലപ്പുറത്ത് സി

സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും ഉച്ചക്കുശേഷം ഇടതുപക്ഷം സാധ്യ തകളും പ്രതീക്ഷകളും സെമിനാറിലാണ് മുഖൃമന്ത്രിയുടെ സാന്നിധൃം വൈകീട്ട് ന്യൂനപക്ഷ പ്രശ്നങ്ങളും നിലപാടുകളും എന്ന സെമിനാർ മന്ത്രി ഡോ

ജലീൽ ഉദ്ഘാടനം ചെയ്യും

പിയും അഴിമ തിയും മുഖ്യ ശത്രുക്കളാണെന്നും തിരഞ്ഞെടുപ്പ് തന്ത്രം അതാതു സംസ്ഥാന സാഹചര്യം നോക്കിയായിരിക്കുമെന്നും ഇന്നലെ നാല് ദിവ സത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സുധാകർ റെഡ്ഡി പറഞ്ഞു

പാർട്ടിയിലെ മുതിർന്ന നേതാവ് കെ

ഇസ്മായിലിനെതിരെ കാനം അവതരിപ്പിച്ച റിപ്പോർട്ടിൽ രൂക്ഷവിമർശനമുള്ളതായി സൂചനയുണ്ട് പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന് തിരുവനന്തപുരവും പരി സ ര പ്ര ദേ ശങ്ങളും പൊങ്കാലയിടാൻ എത്തിയവ രെക്കൊണ്ട് ഇപ്പോൾത്തന്നെ നിറഞ്ഞുകഴിഞ്ഞു ലക്ഷക്കണക്കിന് സ്ത്രീകൾ അടു പ്പുകളൊരുക്കി പൊങ്കാലയ്ക്ക് കാത്തിരിക്കുകയാണ്

ഗവൺമെന്റ് ഗവൺമെന്റിതര ഏജൻസികളും സംഘടനകളും ചേർന്നാണ് പൊങ്കാല ആഘോഷത്തിന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തർക്കായി റെയിൽവേ ഏഴ് പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തും

എസ് ആർ ടി സിയും അധിക സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

തിരുവനന്ത പുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകൾക്കും ഇന്ന് പ്രാദേശിക അവധിയായിരിക്കും ബെംഗളുരുവിൽ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേ ഴ്സിന് തോൽവി ബെംഗളുരു എഫ് സിയോട് മറുപടിയില്ലാത്ത രണ്ട് ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റത് ഇന്ന് രാത്രി എട്ടിന് ഡൽഹി ഡൈനാ മോസ് പൂണെ സിറ്റിയെ നേരിടും കോഴിക്കോട്ട് സംസ്ഥാന കോളേജ് ഗെയിംസിൽ പുരുഷ വിഭാഗ ത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും വനിതാ വിഭാഗത്തിൽ ചങ്ങ നാശ്ശേരി അസംപ്ഷൻ കോളേജും മുന്നേറുന്നു ആദ്യ ദിനമായ ഇന്നലെ അത്ലറ്റിക്സിൽ രണ്ട് മീറ്റ് റെക്കോർഡുകൾ പിറന്നു

നീതു നേടിയ റെക്കോ ഡോടെയാണ് മീറ്റിന് തുടക്കമായത് പുരുഷന്മാരുടെ പോൾവാൾട്ടിൽ കെ

മീറ്റ് ഇന്ന് മന്ത്രി എ

മൊയ്തീൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും

കോഴിക്കോട് പേരാമ്പ്ര കരിയർ ഡെവലപ്മെന്റ് കേന്ദ്രത്തിൽ പി എസ് സി പരീക്ഷാ പരിശീല നവും ഇംഗ്ലീഷ് പരിശീലന പരിപാടിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനത്തിന് സഹാ യകമായ തൊഴിൽസാധ്യതാ കേന്ദ്രങ്ങൾ നാല് ജില്ലകളിൽകൂടി തുടങ്ങു മെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ കശുവണ്ടി മേഖലയിലെ പ്രശ്നങ്ങൾ നിയമസഭ യിൽ ഉന്നയിക്കുമെന്നും പരിഹാര നടപടികൾ നിർദ്ദേശിക്കുമെന്നും പ്രതി പക്ഷനേതാവ് രമേശ് ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു

ഡി

ജില്ലാ കമ്മിറ്റി കശുവണ്ടി മേഖലയുടെ പുനരുദ്ധാരണത്തിന് സമഗ്ര പദ്ധതി നിർദ്ദേശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ട്രേഡ് യൂണിയൻ നേതാക്കൾ കശുവണ്ടി വ്യവസായികൾ തുടങ്ങിയവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സൃംസാരിക്കുകയായിരുന്നു ചെന്നി ത്തല കൊല്ലം പത്തനാപുരത്ത് വർക് ഷോപ്പിൽ ജീവനൊടുക്കിയ പ്രവാസി സംരംഭകൻ സുഗതന്റെ വീട് പ്രതിപക്ഷനേതാവ് സന്ദർശിച്ചു വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും കൊടികുത്തി പണംപിരിക്കുന്ന രീതി അനുവദിക്കില്ലെന്നും ചെന്നിത്തല പറഞ്ഞു

പൂർണമായും നടപ്പാക്കുമ്പോൾ കേരളത്തിന് ഗുണം ലഭി ക്കുമെന്ന് മന്ത്രി ഡോ

ആറു മാസത്തിനകം ഇതു സാധ്യമായേക്കുമെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ അറിയിച്ചു ഇ വേ ബിൽ ഇല്ലാത്തതിനാൽ ചരക്കുകൾ തോന്നുന്നപോലെ കടത്തുകയാ ണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി

ജോസ് അറി യിച്ചു

കൊച്ചിയിലെ ബ്ലാസ്റ്റൺ ബംഗ്ലാവിനെ ചരിത്ര സാക്ഷ്യമാക്കിമാറ്റു മെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ജില്ലാ പൈതൃക മ്യൂസി യമായ ബാസ്റ്റൺ ബംഗ്ലാവ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്നതു മായി ബന്ധപ്പെട്ട കൂടിയാലോചനായോഗത്തിൽ സംസാരിക്കുകയായി രുന്നു മന്തി അന്തരീക്ഷതാപം വർധിക്കുന്ന സാഹചര്യത്തിൽ സൂര്യാഘാത സാധ്യത മുന്നിൽക്കണ്ട് ജാഗ്രത പാലിക്കണമെന്ന് വിവിധ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ മുന്നറിയിപ്പ് നൽകി കൂടുതൽനേരം വെയിൽ ഏൽക്കുന്ന തൊഴിലാളികൾക്കും തുറസായ സ്ഥലങ്ങളിൽ ജോലിചെ യ്യുന്നവർക്കുമാണ് കൂടുതൽ സൂര്യാഘാതിസാധ്യത ധാരാളം വെള്ളം കുടിക്കുകയും ഇടയ്ക്ക് വിശ്രമം എടുക്കുകയും ചെയ്താൽ ഒരുപരിധി വരെ സൂര്യാഘാതം ഒഴിവാക്കാനാകും

ചടങ്ങിൽ പ്രൊഫ

വി തോമസ് എം

പ്ലാസ്റ്റിക്രഹിതഗ്രാമ പ്രഖ്യാപനം നിർവഹിച്ചു ഷുഹൈബ് വധക്കേസിൽ ഇന്നലെ അറസ്റ്റിലായ രണ്ടുപേരെ കോടതി റിമാന്റ് ചെയ്തു തെരൂർ പാലയോട്ടെ രജത് സഞ്ജയ് എന്നിവരാണ് അറസ്റ്റിലായത്

ഇടുക്കി കട്ടപ്പനയിൽ ആരംഭിച്ച പാസ്പോർട്ട് സേവാകേന്ദ്രം ജോയ്സ് ജോർജ് എം

വിദേശകാര്യമന്ത്രാല യവും തപാൽ വകുപ്പും ചേർന്നാണ് സേവാകേന്ദ്രം ആരംഭിച്ചത്

കണ്ണൂർ എസ്

കോളേജിലെ ശ്രേയാ ഹരീന്ദ്രനെ ചിത്രപ്രതിഭയായി തിരഞ്ഞെടുത്തു സ്റ്റേജ് മത്സര ങ്ങൾ ഇന്നാരംഭിക്കും മുതിർന്ന മാധ്യമപ്രവർത്തകനും മുൻ കെ

സി അംഗവുമായ എം അബ്ദുറഹ്മാൻ മണ്ണാർകാട്ട് നിര്യാതനായി

വീക്ഷണം കേരളകൌമുദി ടൈംസ് ഓഫ് ഇന്ത്യ എന്നീ പത്രങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്